മുന്നണികൾക്കും നിർണായകമായ ഉപതെരഞ്ഞെടുപ്പിന്റെ ആവേശം പ്രചാരണത്തിൽ പ്രകടമാണ്

പ്രതിപക്ഷനേതാവ് രമേശ് ചെന്നിത്തല കെ

സംസ്ഥാന അധ്യക്ഷൻ പി

ഗവൺമെന്റിന്റെ വീഴ്ചകളും ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങളു മാണ് യു ഡി എഫും ബി ജെ പിയും ഉയർത്തിക്കാട്ടുന്നത്

ജി

മകനും സുഹൃത്തിനെ കൊന്നകേസിൽ പ്രതിയുമായ സുനിലാണ് അറസ്റ്റിലായത് അമ്മയെ കാണാനില്ലെന്ന മകളുടെ പരാതിയിൽ നടത്തിയ അന്വേഷണത്തിലാണ് കൊന്ന് മറവ് ചെയ്തതാണെന്ന് കണ്ടെത്തിയത് കൂട്ട് പ്രതിയെന്ന് സംശയിക്കുന്ന കുട്ടൻ ഒളിവിലാണ്